ൻ പ്രസിഡന്റ് പോൾ കഗാമയും കൂടിക്കാഴ്ച നടത്തി

തീവ്രവാദി കീഴടങ്ങി

ലോക്സഭയിൽ നാളെ പ്രത്യേക ചർച്ച നടക്കും

പുരുഷവിഭാഗം മത്സരങ്ങൾക്ക് ച്ചെന്നൈയിൽ തുടക്കമായി

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റുവാ ൻ പ്രസിഡന്റ് പോൾ കഗാമെയും തമ്മിൽ ഇന്നലെ രാത്രി നടന്ന പ്രതിനിധിതല ചർച്ചയെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും കരാറുകളിൽ ഒപ്പുവച്ചത് തുകൽ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളും കരാറിൽ ഉൾപ്പെടുന്നു

എസ് ഡോളർ നൽകാനും ഇന്ത്യ തീരുമാനിച്ചു ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാനുള്ള നടപടികളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു റുവാ യിൽ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം ആരംഭിക്കുമെന്നും ഇത് ഇരു ഗവൺമെന്റുകളും തമ്മിൽ ബ്രസ്പ്പെടാനും നയതന്ത്ര പാസ്പോർട്ട് വിസ സൌകര്യങ്ങൾക്കും ഉപകാരപ്രദമാകുമെന്ന് പ്രധാനമന്തി നരേന്ദ്രമോദി സംയുക്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റുവാ യുടെ സാമ്പത്തിക് വികസന പ്രയാണത്തിൽ ഒപ്പം നിൽക്കാൻ കഴിയുന്നത് ഇന്തൃയ്ക്ക് അഭിമാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ വളരെക്കാലമായി നിലനിൽക്കുന്ന സൌഹൃദ സഹകരണ ബന്ധത്തിൽ നരേന്ദ്രമോദിയുടെ സന്ദർശനം നാഴികക്കല്ലാണെന്ന് റുവാ ൻ പ്രസിഡന്റ് പ്രതികരിച്ചു പിന്നീട് ഇന്ത്യൻ സമൂഹവുമായി ശ്രീ

കുട്ടികൾക്കിടിയിലെ പോഷണക്കുറവും ഏറിവരുന്ന പട്ടിണിയും കുറയ്ക്കുന്നതിനും കൃഷിക്കുമായുള്ള പിദ്ധതിയാണിത്

കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചശേഷം ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബഞ്ച് സമാന കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഭരണഘടന ബഞ്ചിന് കേസ് കൈമാറി ഭരണഘടയിലെ ചില അനുഛേദങ്ങൾക്ക് എതിരായതിനാൽ ബഹുഭാര്യാത്ഥം നിക്കാഹ് ഹലാല എന്നിവ ഭരണഘടന വിരുദ്ധമായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടാണ് ഹർജി

ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട ശേഷവും ് എം

മേഖലയിൽ മലിനീകരണം ഉ ാക്കുന്ന വൃവസായ ശാലകൾ അടച്ചുപൂട്ടുമെന്നും കരട് രേഖയിൽ പറയുന്നു

അവിശ്വാസ പ്രമേയ ചർച്ചയിൽ റാഫേൽ വിഷയത്തിൽ ലോക്സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം ഉയർത്തിയാണ് അവകാശലംഘന നോട്ടീസ് സമർപ്പിക്കാനുള്ള പ്രതിപക്ഷ നീക്കം

എന്നാൽ പരമ്പരാഗ്രത്മാർ പഹൽഗാം പാതവഴിയുള്ള യാത്ര പുരോഗമിക്കുന്നു ബൽതാലിൽ നിന്നും ഇന്ന് രാവിലെ മുതൽ ഗുഹാക്ഷേത്രത്തിലേക്ക് ആര്രേയൂർ കടത്തി വിടുന്നില്ലെന്ന് അധികൃതർ അറിയിച്ചു

സുരക്ഷാ സേനയ്ക്ക മുമ്പാകെ കീഴടങ്ങിയ തീവ്രവാദിയെ പിന്നീട് കൂടുംബത്തോടൊപ്പം വിട്ടു ഒരു തീവ്രവാദി അക്രമത്തിന്റെ പാത വെടിഞ്ഞതായും കൂട്ടായ ശ്രമത്തിന്റെ ഫലമായി സ്വന്തം കുടുംബത്തിലേക്ക് തിരികെ പോയതായും കശ്മീർ മേഖലാ പൊലീസ് ട്ടിറ്ററിലൂടെ അറിയിച്ചു സുരക്ഷാ കാരണങ്ങളാൽ കീഴടങ്ങിയ തീവ്രവാദിയുടെ വിവരങ്ങൾ പുറത്ത് വിട്ടിട്ടില്ല

കനത്ത മഴയെ തുടർന്ന് ജനങ്ങൾ ദുരിതത്തിലാണെന്നും വിഷയത്തിൽ ഗവൺമെന്റ് അടിയന്തര ഇടപെടൽ നടത്തണമെന്നുമുള്ള ആവശ്യമുന്നയിച്ച് കേരളത്തിൽ നിന്നുള്ള എം പി മാർ നൽകിയ നോട്ടീസിലാണ് സ്പീക്കർ ചർച്ചയ്ക്ക് അനുമതി നൽകിയത് സംസ്ഥാനത്തെ മഴക്കെടുതി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ബി

ഒന്നും ര ും പ്രതികൾക്കെതിരെ കൊലക്കുറ്റവും മറ്റുപ്രതികൾക്കെതിരെ വ്യാജരേഖ ചമയ്ക്കൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങളുമാണ് ചുമത്തിയിരിക്കുന്നത് ഇതിൽ മൂന്നാംപ്രതി വിചാരണയ്ക്കിടെ മരിച്ചിരുന്നു

പശ്ചിമബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ്സിനെതിരേയും ത്രിപുരയിലെ ബി ജെ പി ഗവൺമെന്റിനെതിരേയും ഇവർ മുദ്രാവാക്യം ഉയർത്തി

ജനക്കൂട്ട വിചാരണയിൽ നിരവധിപേർ കൊല്ലപ്പെടുന്ന സാഹചരൃത്തിൽ ഗവൺമെന്റ് ഇതിനെതിരെ ശക്തമായ നിയമനടപടി സ്വീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു

യുദ്ധ നായകൻമാർക്ക് സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന പ്രധാന ചടങ്ങ് വ്യാഴാഴ്ചയാണ് നടക്കുകയെന്ന് ആകാശവാണി ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു വിവിധ കലാപരിപാടികളും ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടു ് നാളെ ഓപ്പറേഷൻ വിജയ് വിവരിക്കുന്ന പ്രദർശനം നടക്കും

സ്വിറ്റ്സർലന്റിനും സൌദി അറേബൃയ്ക്കുമൊപ്പം ഗ്രൂപ്പ് ഇ യിൽ അഞ്ചാം സീഡിലാണ് ഇന്തൃ ഇന്ന് സൌദിയുമായും സ്വിറ്റ്സർല ുമായും മത്സരിക്കും